ഖബറടക്കം വ്രൈകീട്ട് ചെർക്കളം വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ

കോട്ടയം ജില്ലയിലെ താഴ്ന്ന് പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളം കയറി ജില്ലാ ഭരണകൂടം ജാഗ്രതാനിർദേശം നൽകി

രാമകൃഷ്ണൻ ൾ ൽ ൾ മുൻമന്ത്രിയും മുസ്ലീം ലീഗ് നേതാവുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു

കാസർക്കോഡ് ചെർക്കളത്തെ വസതിയിൽ രാവിലെ എട്ടോടെയായിരുന്നു അന്തൃം ഹൃദയസം ബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മംഗ ലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ഇന്നലെ രാത്രിയായിരുന്നു വീട്ടിൽ എത്തിച്ചത് മൃതദേഹം പൊതുദർശനത്തിനായി ചെർക്കളയിലെ വസതിയിൽ വെച്ചിരിക്കുകയാണ് സാമൂഹൃ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും നേതാക്കളും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു വരിക യാണ് കബറടക്കം വൈകീട്ട് ചെർക്കളം ്വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും

പിന്നാക്കവിഭാഗ ക്ഷേമ കമ്മ റ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് നാല് തവണ മഞ്ചേ ശ്വരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു മുസ്തീം ലീഗ് സംസ്ഥാന ട്രഷററും യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ചെയർമാനുമായി പ്രവർത്തിച്ചുവരികയായിരുന്നു മുസ്ലീം യൂത്ത് ലീഗിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം പിന്നീട് കണ്ണൂർ ജില്ലാ ലീഗ് യൂത്ത് പ്രസിഡന്റായി

തന്റെ മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പിന്റെ ചുമതല വളരെ വിജ യകരമായി നിർവഹിച്ച മന്ത്രിയായിരുന്നു ചെർക്കളം അബ്ദുള്ള യെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി അനുസ്മരിച്ചു

ഷട്ടറുകൾ ഉയർത്തേണ്ട്ടി ്വന്നാൽ ആവ ശ്യമായ മുൻകരുതൽ സ്വീകരിച്ചു തുടങ്ങിയതായി അദ്ദേഹം പറ ഞ്ഞു

ബോട്ട് കിട്ടുന്നില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ബോട്ടെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ധാനൃങ്ങൾ എത്തി ക്കാൻ സപ്ലൈകോയോട് നിർദേശിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് ആവ ശ്യപ്പെടുന്ന അത്രയും സാധനങ്ങൾ നൽകുമെന്നും ധാന്യം കിട്ടാൻ റേഷൻകാർഡ് ആവശ്യമില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് എത്രയും വേഗം ദുരിതാശ്വാസ സഹായം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

എന്നാൽ ആല പ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പലഭാഗവും ഇപ്പോഴും വെള്ള ത്തിനടിയിലാണ് കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങൾ ജാഗ്രത് പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പു നൽകി കിഴക്കൻ മലയോര മേഖല യിലും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും മൃഴ ശക്തമായി തുടരുകയാ ണ് മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു മഴ ഇനിയും തുടർന്നാൽ വെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ഉപജീവനത്തിനു വേണ്ടി റോഡരികിൽ മീൻ വിറ്റ ഹനാനെ തിരായ പ്രചാരണത്തിൽ നടപടിയെടുക്കാൻ മുഖൃമന്ത്രിയുടെ ഓഫീസ് പൊലീസിന് നിർദേശം നല്കി ഹനാന് ആവശ്യമായ സംരക്ഷണം നൽകാൻ എറണാകുളം ജില്ലാ കലക്ടറോടും ആ വശ്യപ്പെട്ടിട്ടുണ്ട് കോളജ് യൂണിഫോമിൽ റോഡരികിൽ മീൻ വിറ്റ ഹനാനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു ഹനാനെതിരെ നടന്നത് സോഷ്യൽ മീഡിയ ഗുണ്ടായിസമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഹനാൻ ചെറുത്തുനിൽപിന്റെ പ്രതീകമാണ് സമൂഹമാധ്യമങ്ങൾ എന്തും പറയുന്നവരുടെ കേന്ദ്രമായി മാറുന്നുവെന്നും അവർ അഭി പ്രായപ്പെട്ടു ഹനാനെതിരായ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തിൽ സൈബർ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതനന്ദൻ അഭിപ്രായപ്പെ ട്ടു അതിജീവനത്തിനു വേണ്ടി ഹനാൻ നടത്തുന്ന പോരാട്ടങ്ങളെ അഭിനന്ദിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു

ഇയാളെ ഉച്ച യോടെ കോടതിയിൽ ഹാജരാക്കും അതേസമയം കഴിഞ്ഞ ദിവസം പിടിയിലായ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫയെ ചോദ്യം ചെയ്തുവരിക യാണെന്ന് പൊലീസ് അറിയിച്ചു

രാജ്യ വ്യാപകമായി നാളെ ഒ പി ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു ദേശീയ മെഡിക്കൽ ബില്ലിനെതിരെയാണ് പ്രതിഷേധം അത്യാഹിത വിഭാഗങ്ങളെ സമരം ബാധിക്കില്ല സംസ്ഥാനത്ത് ഡീസൽ ലിറ്ററിന് ഏഴു പൈസ കുറഞ്ഞു പെട്രോൾ വില മൂന്നാം ദിവസവും മാറ്റമില്ലാതെ തുടരുന്നു പഴക്കം ചെന്ന കോച്ചുകൾ റെയിൽ റെസ്റ്റോറന്റുകളാക്കാൻ മേഖലകൾക്ക് റെയിൽവെ ബോർഡ് നിർദേശം നൽകി ഭോപ്പാ ലിലെ രാജ്യത്തെ ആദ്യ റെയിൽ കോച്ച് റസ്റ്ററന്റിന്റെ മാതൃകയി ലാണ് മറ്റിടങ്ങളിലും സ്ഥാപിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടി ക്കാനും വരുമാനം വർധിപ്പിക്കാനും ഇതുവഴി കഴിയുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ വൃാജമദൃവും ലഹരി വസ്തുക്കളും തടയാൻ ആഗസ്റ്റ് ഒന്നു മുതൽ സംസ്ഥാന വ്യാപകമായി എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു വ്യാജമദ്യ വിൽപന് കർശനമായി തടയും

വ്യാജ കള്ള് തടയുന്നതിനും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം സംസ്ഥാനത്ത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാണെന്ന് മന്ത്രി പറഞ്ഞു

ലഹരി ഉപയോഗത്തിനെതിരെ വൃാപകമായ ബോധവൽ ക്കരണത്തിന് വിമുക്തിമിഷൻ പ്രവർത്തന്ം വ്യാപകമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ഗവ ഗസ്റ്റ് ഹൌസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കു കയായിരുന്നു മന്ത്രി അമ്പലപ്പുഴ കരൂരിൽ കണ്ടെയ്നർ ലോറി കാറിലിടിച്ച് വനിത സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു

സിവിൽ പോലീസ് ഓഫീസർ നിസാറിന് ഗുരുതരമായി പരിക്കേറ്റു

എറണാകുളത്ത് കാണാതായ ഹസീനയെ കണ്ടെത്തി കൊട്ടിയത്തേക്ക് പോകും വഴിയായിരുന്നു അപ്പകടം പ്രമുഖ ചരിത്രകാരൻ ടി എച്ച് പി ചെന്താരശ്ശേരി അന്തരിച്ചു തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അയ്യങ്കാളിയുടെ ജീവചരിത്രം ആദി ഇന്ത്യരുടെ ചരിത്രം പൊയ്കയിൽ അപ്പച്ചൻ ഉൾപ്പെട്ട് നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട് സംസ്കാരം നാളെ രാവിലെ തൈക്കാട് ശാന്തികവാടത്തിൽ കോഴിക്കോട്ടു നിന്ന് എറണാകുളത്തേക്ക് കെ എസ് ആർ ടി സി യുടെ പുതിയ ചിൽ ബസ് സർവീസ് പരീക്ഷണ ഓട്ടം തുട ങ്ങി തുടക്കമെന്ന നിലയിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച ആദ്യ ട്രിപ്പ് നാളെ മുതൽ നാലു മണിക്കായിരിക്കും പുറപ്പെടുകയെന്ന് അധികൃതർ കോഴിക്കോട്ട് പറഞ്ഞു ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്കും അവിടെ നിന്ന് തിരി ച്ചുമുള്ള സർവ്വീസ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധിപ്പിച്ചായിരിക്കും

സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർത്ഥാടകരുടെ ഹജ്ജ് ക്യാമ്പ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യും

ബാഗേജ് ക്ലിയറൻസ് പാസ്പോർട്ട് ക്ലിയറൻസ് എന്നിവയ്ക്ക് ശനിയാഴ്ചയോടെ ഹജ്ജ് സെൽ പ്രവർത്തനമാരംഭിക്കും

ലാലിഗ വേൾഡ് പ്രീ സീസൺ ടൂർണമെന്റിലെ രണ്ടാം മത്സരത്തിൽ ഇന്ന് ജിറോണാ എഫ് സി മെൽബൺ എഫ് സി യെ നേരിടും

ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ് റ്റേഴ്സിനെ ഏകപക്ഷീയമായ ആറു ഗോളുകൾക്ക് തോൽപിച്ച ആത്മവിശ്വാസവുമായാണ് മെൽബൺ എഫ് സി ഇന്ന് കളിക്കിറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആത്മവിശ്വാസത്തിലാണ് ജിറോണാ എഫ് സി

കേന്ദ്രവ്യോമയാന മന്ത്രാലയത്തിനു കീഴിലെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിലെ സംഘമാണ് പരിശോധിക്കു ന്നത് വിമാനത്താവളത്തിന് ലൈസൻസ് നല്കുന്നതിന് മുന്നോ ടിയായാണ് പരിശോധന കൂടാതെ സർവ്വീസ് നടത്തുന്ന വിമാനങ്ങൾ വിമാനത്താവള ത്തിനു നൽകേണ്ട സർവ്വീസ് ചാർജ്ജ് തീരുമാനിക്കുന്നതിനുള്ള സംഘവും ഇന്ന് മട്ടന്നൂരിലെത്തും എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണ് വിമാന ത്താവളം സന്ദർശിക്കുക

കടപ്പുറത്ത് സാമൂഹിക വിരുദ്ധശല്യം വർധിച്ച പശ്ചാ ത്തലത്തിലാണ് ടൌൺ പൊലീസിനു കീഴിൽ എയിഡ്പോസ്റ്റ് സ്ഥാപിച്ചത് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ തുറമുഖ വകുപ്പിന്റെ സ്ഥലത്താണ് സഹായകേന്ദ്രം പ്രവർത്തിക്കുന്നത്

ജില്ലയിലെ മുഴപ്പിലങ്ങാട് പൃയ്യന്നൂർ എഫ് സി ഐ ഗോഡൌണുകളിൽ അരിനീക്കം തടസ്സപ്പെട്ടിരിക്കുകയാ ണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറിയുമായി വലിയ ലോറികളുടെ വരവ് നിലച്ചതും വിപണിയെ ബാധിച്ചു

മുൻ അലോട്ട്മെന്റു കളിൽ പ്രവേശനം നേടാതെ രജിസ്റ്റർ ചെയ്ത് ഉയർന്ന ഓപ്ഷന് കാത്തിരിക്കുന്നവരടക്കം നാലാം അലോട്ട്മെന്റിൽ വരും ഏത് സ്ഥാപനത്തിലാണോ അലോട്ട്മെന്റ് നിലനിൽക്കുന്നത് ആ സ്ഥാപ നത്തിൽ പ്രവേശനം നേടണം വൈകീട്ട് നാലു വരെയാണ് പ്രവേ ശന സമയം നിലമ്പൂർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് സ്കൂളിലെത്താത്ത ആദിവാസി കുട്ടികളുടെ കണക്കെടുപ്പ് നട ത്തി

ഇരുട്ടിന്റെ മറവിൽ ഫ്ളാറ്റിലെ മാലിന്യം പൊതു വഴിയോരങ്ങളിലും ഒഴിഞ്ഞ പറമ്പിലും തള്ളുന്നവർക്കെതിരെ വൻപിഴ ഉൾപ്പെടെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് കോർപ്പ റേഷൻ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി ബാബുരാജ് പറഞ്ഞു

മാലിന്യ സംസ്കരണത്തിന് ഫ്ളാറ്റ് അധികൃതർ തന്നെ നിയമാനുസൃതമായ സംവിധാനങ്ങൾ ഒരുക്ക ണമെന്നും അദ്ദേഹം അറിയിച്ചു

എ പി ജെ അബ്ദുൾ കലാം സ്മാരക പ്രഭാഷണം ഇന്ന് ഉച്ച കഴിഞ്ഞ് കോഴിക്കോട്ട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നട ക്കും

ജി മാധവൻ നായർ പ്രഭാഷണം നിർവഹിക്കും പി എം താജ് അനുസ്മരണ പരിപാടിക്ക് കോഴിക്കോട്ട് തുട ക്കമായി

ഉച്ചകഴിഞ്ഞ് ടൌൺഹാളിൽ സമകാലീന നാടകവേദി യുമായി ്ബന്ധപ്പെട്ട സെമിനാർ ഡോ കെ ശ്രീകുമാർ ഉദ്ഘാ ടനം ചെയ്യും കോഴിക്കോട് മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ ന്യൂറോ സർജറി വിഭാഗത്തിനു കീഴിൽ സ്റ്റെപ്പ് ഡൌൺ ഐ സി യു ആരം ഭിച്ചു ഐ സി യുവിൽ ചികിത്സ തേടിയവരെ ആദ്യം സ്റ്റെപ്പ് ഡൌൺ ഐ സി യു വിലും രോഗം ഭേദമാകുന്ന പ്രകാരം വാർഡി ലേക്കും മാറ്റും